പ്രസംഗത്തിൽ പെരുമാറ്റചട്ടലംഘനമുണ്ടായിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയും ബി ജെ പി അധ്യക്ഷനും പെരുമാറ്റചട്ടം ലംഘിച്ചിട്ടും നടപടിയില്ലെന്ന കോൺഗ്രസ് പരാതിയിൽ സുപ്രീം കോടതി തെരഞ്ഞെ ടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു ഇന്ന് സാർവ ദേശീയ തൊഴിലാളി ദിനം കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവം ഇന്ന് സുൽത്താൻബത്തേരിയിൽ ആരംഭിക്കും ഐ പി എൽ ക്രിക്കറ്റിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് പുറത്തായി

മഹാരാഷ്ട്രയിലെ വാർധയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗ ത്തിൽ പെരുമാറ്റചട്ടലംഘനം നടന്നിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാ ക്കി രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ മാസം ഒന്നിന് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് നൽകിയ പരാ തിയിലാണ് മോദിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്സീൻ ചിറ്റ് നൽകിയത് ഭൂരിപ ക്ഷത്തെ ഭയന്നാണ് കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സ രിക്കുന്നതെന്നായിരുന്നു മോദിയുടെ പരാമർശം ഹിന്ദുക്കളെ കോൺഗ്രസ് അപ മാനിച്ചെന്നും രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസിനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരി ക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെപി അധ്യക്ഷൻ അമി ത്ഷായും നിരന്തരം തെരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ടം ലംഘിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ദേശീയ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സുസ്മിതാദേവിന്റെ പരാതിയിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ച് നാളെ രാവിലെ പത്തരയ്ക്ക് കേസ് വീണ്ടും പരിഗണിക്കും

ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട കോൺഗ്രസ് നേതൃസംഘം കഴിഞ്ഞ വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ബി ജെ പി വൻതോതിൽ ബൂത്ത്പിടുത്തം നടത്തിയതായി ആരോപിച്ചു

ജന്മം കൊണ്ട് ഇന്ത്യക്കാരനായ രാഹുൽഗാന്ധിയുടെ പൌരത്വം സംബ ന്ധിച്ച് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ആരോപണം ഉന്നയിച്ചത് ജനങ്ങ ളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് കോൺഗ്രസ് കുറ്റ പ്പെടുത്തി

സൂബ്രഹ്മണ്യം സ്വാമിയുടെ പരാതിയിൽ രാഹുൽഗാന്ധിക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം സുപ്രീം കോടതിയേക്കാൾ വലുതാണോയെന്ന് അദ്ദേഹം ചോദിച്ചു

കള്ളവോട്ട് നടന്നുവെന്ന വാർത്ത ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ടി വന്നാൽ നിയമ നടപടികളൂമായി മുന്നോട്ട് പോകു മെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു

എൽ ഡി എഫ് ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവീനർ കൂടിയായ ടി

രാജേഷ് എം എൽ എയുടെ മണ്ഡലത്തിൽപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ ചെറുതാഴത്താണ് വ്യാപകമായി കള്ളവോട്ട് നടന്നത്

ഇതിന്റെ ഭാഗമായി പടക്കൻ ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയു ണ്ട് തമിഴ്നാട് പുതുച്ചേരി ദക്ഷിണ ആന്ധ്ര തീരങ്ങളിലും ബംഗാൾ ഉൾക്കട ലിലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലും കടൽ പ്രക്ഷുബ്ധമായിരിക്കും ചുഴലിക്കാറ്റ് കണക്കിലെടുത്ത് നാവികസേനയുടെയും തീരദേശസം രക്ഷണസേനയുടെയും കപ്പലുകളും ഹെലികോപ്റ്ററുകളും ഏതു പ്രതിസന്ധിയും നേരിടാൻ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനാ അംഗ ങ്ങളെയും വിവിധ പ്രദേശങ്ങളിൽ വിന്യസിച്ചു

ആലപ്പുഴ ജില്ലയിൽ കനത്ത വേനൽ മഴ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ പലയിടങ്ങളിലും തുടരുകയാണ് അമ്പലപ്പുഴ താലൂക്കിൽ ചിലയിടങ്ങളിൽ കടൽക്ഷോഭവുമുണ്ട് ് കേരള ഹൈക്കോടതി ജഡ്ജി പി

ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചു ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് അഭയ് എസ് ഓകയെ കർണ്ണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശ്രീപതി രവീന്ദ്രയെ രാജസ്ഥാൻ ഹൈക്കോ ടതി ചീഫ് ജസ്റ്റിസായും നിയമിച്ചതായി നിയമ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറി യിച്ചു

തൊഴിലാളികളുടെ അവകാ ശങ്ങളും തൊഴിലിന്റെ മഹത്വവും ഉയർത്തിക്കാട്ടി ലോകമെങ്ങും തൊഴിലാളിദിനം ആഘോഷിക്കുകയാണ്

തങ്ങളുടെ ജീവനോപാധി സംരക്ഷിക്കാനും നവലിബറൽ നയങ്ങളുടെ ആക്രമണങ്ങളെ ചെറു ക്കാനും തൊഴിലാളികളും കർഷകരും നടത്തുന്ന പോരാട്ടത്തോട് മുഖ്യമന്ത്രി ഐക്യ ദാർഢ്യം പ്രകടിപ്പിച്ചു മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സമരങ്ങളോ ടൊപ്പം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വർഗീത യക്കെതിരായ പോരാട്ടവും തൊഴിലാളികൾ ശക്തിയായി മുമ്പോട്ടുകൊണ്ടുപോക ണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോട്ടയം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തൊഴിലാളികൾക്കായി കായികമേള നടത്തും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മെയ്ദിന റാലികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവം ഇന്ന് സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളജിൽ ആരംഭിക്കും അതിജീവന ത്തിന്റെ ഉത്സവം എന്ന പേരിലാണ് അഞ്ച് ദിവസത്തെ കലോത്സവം സംഘടിപ്പി ക്കുന്നത്

പുറത്തായി ബംഗലുരുവിൽ ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു ഇതേ തുടർന്ന് ഇരുടീമുകളും ഓരോ പോയിന്റ് പങ്കിട്ടതോടെ ബാംഗ്ലൂർ പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയായിരുന്നു ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും മുൻ ജലന്തർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിശ്വസ്തനിൽ നിന്ന് പഞ്ചാബ് പൊലീസ് കണ്ടെടുത്ത തുകയിൽ നിന്ന് പണം കടത്തിയ രണ്ട് പൊലീസ് ഉദ്യോഗസ്ഥരെ കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തു

ഇവരിൽ നിന്ന് നാലുലക്ഷം രൂപ കണ്ടെടുത്തു അറസ്റ്റ് വിവരം പഞ്ചാബ് പൊലീ സിനെ അറിയിച്ചിട്ടുണ്ട്

കനത്ത മഴയിലും കാറ്റിലും പത്തനംതിട്ട ജില്ലയിലുണ്ടായ നാശനഷ്ട ങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് നാളെ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് ജില്ലാകലക്ടർ പി

വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് അടി യന്തര ധനസഹായം ഉടൻ നൽകുവാൻ ക്രമീകരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു പത്തനംതിട്ട പമ്പ ജലസേചന പദ്ധതിയുടെ മണിയാർ ഡാമിന്റെ ഷട്ട റുകൾ അറ്റകുറ്റപ്പണികൾക്കായി തുറന്നു

ട്രെയിൻ സമയങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തിയതായി ദക്ഷിണറെയിൽവെ അറിയിച്ചു

കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ ഷൊർണൂരിൽ നിന്നാണ് ആരംഭിക്കുക

് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ചോദ്യങ്ങളിൽ കൃത്യ മായ മറുപടി നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കെ

സുധാകരൻ പറഞ്ഞു കൊച്ചിയിൽ വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ പരാതി കേൾക്കുകയായിരുന്നു അദ്ദേഹം

് കൂത്തുപറമ്പിനടുത്ത പാറാലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു

കൂടെയുണ്ടായിരുന്ന ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ട ഇടുക്കി മറയൂരിൽ മദ്ധ്യവയസ്കനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി

മറയൂർ ശൂശിനി ആദിവാസികുടി സ്വദേശി അയ്യപ്പസ്വാമിയാണ് കൊല്ലപ്പെട്ടത് കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കൊക്കയിൽ വലിച്ചെറിയുക യായിരുന്നു പ്രതി വനത്തിൽ ഒളിച്ചതായി പൊലീസ് അറിയിച്ചു

നിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി തിരുവാണിയൂർ വെട്ടിക്കൽ സ്വദേശി ബേസിൽ എൽദോയെയാണ് കാണാതായത്

മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്ന് അറിയിച്ച ക്ഷാമബത്ത കുടിശ്ശിക നൽകാതിരുന്നതിന് പുറമേ ശമ്പളപരിഷ്കരണ നടപടികളും വൈകിപ്പിക്കുക യാണെന്ന് കേരള ഹയർസെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന നേതൃ യോഗം കോഴിക്കോട്ട് ആരോപിച്ചു ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകത പരിഹരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു

ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കൊല്ലം ജില്ല കലക്ടർ ഡോ

കാർത്തികേയൻ അറിയിച്ചു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ അഗ്നിസുരക്ഷാ ഉപകരണങ്ങൾ സജ്ജീകരിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാത്ത കെട്ടിട ങ്ങൾ അടച്ചുപൂട്ടുമെന്നും കലക്ടർ വ്യക്തമാക്കി

അൻവർ എം

ഐ

പ്രസ്താവന ്കളിലൂടെ അൻവറിന്റെ ഇടതുപക്ഷമനസ്സ് നഷ്ടപ്പെട്ടു വെന്നാണ് മനസ്സിലാകുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് കെ

നിന്നും അനധികൃതമായി മണൽ കടത്തിയ അന്തർസംസ്ഥാന ലോറികൾ കണ്ണൂരിൽ പിടിയിലായി